ശാസ്ത്രത്തിനും നൂതന ആശയങ്ങൾക്കുമായി നിക്ഷേപം നടത്തുന്നവരുടേതാണ് നാളത്തെ ലോകം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

വർദ്ധിപ്പിക്കുന്നത് വികസനം പ്രേഗ്മാക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ

പങ്കാളിത്തത്തിന് ബ്രിട്ടീഷ് സർക്കാരിനും സ്ഥകാര്യ മേഖലയ്ക്കും ക്ഷണം

സൂപ്പർ കിങ്സിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു

ഗ്രാൻഡ് ചലഞ്ചസ് വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

അമേരിക്കയുടെ നാലിരട്ടി ജനസംഖ്യയുള്ള ഇന്ത്യ കോവിഡിനെതിരെ പോരാടുന്നത് ഒത്തൊരുമിച്ചാണ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണ് കോവിഡാനന്തര കാലത്തും മരുന്ന് ഉൽപാദനത്തിൽ രാജ്യം മുൻപന്തിയിൽ നിലനിൽക്കുമെന്ന് ശ്രീ

ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യക്ക്തു മഹാമാരി നമ്മളെ പഠിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞൂ

പിന്നീട് വെൽക്കം ട്രസ്റ്റും ഇതിന്റെ ഭാഗമായി കൃഷി പോഷണം ശുചിത്വം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം തുടങ്ങി വിവിധ വികസന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തുകയാണ് ഗ്രാൻഡ് ചലഞ്ചിന്റെ ലക്ഷ്യം

മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് സമൂല മാറ്റങ്ങൾ കൊണ്ടുവരും ആഗോള സാങ്കേതിക വിദ്യയും പ്രാദേശിക സംസ്ക്കാരവും കൂട്ടിയിണക്കി പുതിയ വിദ്യാഭ്യാസ സംസ്കാരം രൂപവൽക്കരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിച്ചതായി ശ്രീ നരേന്ദ്ര മോദി ചൂണ്ടിക്കാട്ടി

അടുത്ത സാമ്പത്തിക വർഷം വരെ ഇത് തുടരേണ്ടതുണ്ട് കൽക്കർ പ്രെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ സെക്രട്ടറിമാർ ഈ മന്ത്രാല്യങ്ങളിലെ പൊതുമേഖലാ കമ്പനികളുടെ മേധാവികൾ എന്നിവരുമായി നടത്തിയ വീഡിയോ കോൺഫ്രൻസിനിടെയാണ് ധനമന്ത്രിയുടെ പരാമർശം

കേരളം ഉൾപ്പെടെയുള്ള ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമാണ് വിള സംഭരണം നടക്കുന്നത്

നിലവിൽ ഒന്നേമുക്കാൽ ലക്ഷത്തിലധികം പേർ കോവിഡ് ചികിത്സയിലുണ്ട്

സിബിഐ പ്രഥമ വിവര റിപ്പോർട്ട് സ്മർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി യുടെ നടപടി

ബി ഐ കണ്ടെത്തിയത്

ഭാരത് മാല പരിയോജനയുടെ കീഴിൽ നിർമ്മിക്കുന്ന പാർക്ക് അസം ജനതയ്ക്ക് വ്യോമ റോഡ് റെയിൽ ജലഗതാഗതത്തിന് നേരിട്ടുള്ള അവസരമൊരുക്കും അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ ഡോ ജിതേന്ദ്രസിങ് ജനറൽ വി

പുതിയ അവസരങ്ങൾ വിനിയോഗിക്കാൻ ഔരുമിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം ബ്രിട്ടീഷ് ഹ്ഹെക്കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽഫ്ടടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രി ഡോ

കോവിഡ് അനന്തര ലോകത്ത് സാമ്പത്തികിറ്റ ്വ്യാപാരം ശാസ്ത്ര ഗവേഷണം തുടങ്ങിയ വിവിധ രംഗങ്ങളിൽ ്പുതിയ മാതൃകകൾ ഉയർന്നു വരികയാണെന്നും ഇരുക്ക്ജ്യങ്ങൾക്കും വിജയം നേടാനുള്ള അവസരമാണെന്നും അദ്ദ്ഹം പറഞ്ഞു മേഖലയിലെ എട്ട് സംസ്ഥാനങ്ങളിലും ശാസ്ത്രവിഷയങ്ങളും ഗണിതവും പഠിപ്പിക്കാൻ ബ്രിട്ടീഷ് കൌൺസിൽ മുന്നോട്ടുവച്ച നിർദ്ദേശം മന്ത്രി അംഗീകരിച്ചു

മേഖലയിലെ കരകൌശല ഉൽപ്പന്നങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധ വൃജ്ഞനങ്ങൾ എന്നിവ ആഗോള വിപണിയിൽ എത്തിക്കാനുള്ള സന്നദ്ധതയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അറിയിച്ചു

നാവികസേനകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താനുള്ള സംയുക്ത അഭ്യാസം ഇത്തവണ സമ്പർക്കമില്ലാത്ത രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്

എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് ജയം ചെന്നൈ സൂപ്പർ കിങ്സിനെ ഏഴ് വിക്കറ്റിനാണ് രാജസ്ഥാൻ പരാജയപ്പെടു ത്തിയത്

ഇന്ന് ദുബായിയിൽ നടക്കുന്നു് മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് ഡൽഹി ക്യാപ്പിറ്റ്ൽസ്ുമായി ഏറ്റുമുട്ടും

നിർണ്ണായക സംസ്ഥാനമായ ഫ്ളോറിഡയിൽ മുൻകൂർ വോട്ടിങ് ആരംഭിച്ചു ഇവിടെ മുന്നിലെത്താനായില്ലെങ്കിൽ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ വിജയപ്രതീക്ഷയ്ക്ക് തിരിച്ചടിയാവും പ്രചാരണത്തിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ ട്രംപും ജോ ബൈഡനും വ്യാഴാഴ്ച ടെന്നീസിയിൽ അവസാന സംവാദത്തിൽ ഏർപ്പെടും